കൂട്ടികൾക്കു മേൽ രക്ഷിതാക്കളും അദ്ധ്യാപകരും സമ്മർദ്ദം ചെലുത്തരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

ഇനങ്ങളെ ഉൾപ്പെടുത്താൻ കേന്ദ്ര മ്യൂന്തിസ്ഭാ തീരുമാനം

കേരളത്തിൽ എസ് എസ് എൽ ്സ്ഗി പ്ലസ് ടു പരീക്ഷകൾ ഇന്ന് ന് ആരംഭിക്കും

കുത്തിവയ്പ്പ് നടത്താൻ സംസ്ഥാനങ്ങളോട് കേന്ദ്രം

തീരുമാനം

ഇന്തൃയും സമനിലയിൽ

പരീക്ഷാ കാലത്തെ മാനസിക സമ്മർദ്ദങ്ങളെ മറികടക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളും വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ നടന്ന സംവാദത്തിൽ പ്രധാനമന്ത്രി പങ്കുവച്ചു പരീക്ഷയെ ജീവിതാവസാനമായി കാണരുതെന്നും അടുത്ത അവസരം മികച്ചതാക്കാനാണ് എല്ലയ്പോഴും ശ്രമിക്കേണ്ടതെന്നും ശ്രീ

പ്രയാസകരമായ വിഷയങ്ങൾ പഠിക്കാൻ വിദ്യാർത്ഥികൾ കൂടുതൽ സമയം ചെലവഴിക്കണം എല്ലാ ദിവസവും ഒഴിവു സമയം കണ്ടെത്തുന്നൂത് പ്ര്ധാനമാണെന്നും ആ നേരത്ത് വീട്ടുജോലികളിൽ കുട്ടുംബ്പാംഗങ്ങളെ സഹായിക്കണമെന്നും പ്രധാനമന്ത്രി പ്റഞ്ഞു

വി മൊഡ്യൂൾ എൽ ഇ ഡി എയർ കണ്ടീഷണർ എന്നിവയെക്കൂടി ഉൾപ്പെടുത്താൻ കേന്ദ്രമന്ത്രി സഭ തീരുമാനിച്ചു തീരുമാനം രാജ്യത്തെ നിർമാണ മേഖലയ്ക്ക് ഊർജ്ജം പകരുമെന്ന് കേന്ദ്ര വാണിജൃ മന്ത്രി പീയുഷ് ഗോയൽ അറിയിച്ചു ഇതുവഴി വരുന്ന അഞ്ച് വർഷത്തിനിടെ നാല് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും

മുകേഷ് അംബാനിയുടെ വീടിനടുത്ത് സ്ഫോടകവസ്തു കണ്ടെത്തിയതും വ്യവസായിയായ മൻസുഖ് ഹിരാനെയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ജഡ്ജി പി ആർ സിട്രെ വെള്ളിയാഴ്ച വരെ വെയ്സിന്റെ എൻഐഎ കസ്റ്റഡി നീട്ടി

അനിൽ ദേശ്മുഖിനും മഹാരാഷ്ട്ര സർക്കാരിലെ മറ്റൊരു കാബിനറ്റ് മന്ത്രിക്കും എതിരെ പ്രസ്താവന നടത്താൻ വെയ്സ് ശ്രമിച്ചു അനിൽ ദേശ്മുഖ് രണ്ട് കോടി രൂപ ആവശ്യപ്പെട്ടതായും ആരോപണത്തിൽ പറയുന്നു

കാരണം നാളെയോടെ രേഖാമൂല്ം അറിയിക്കണം

ആകെ എട്ട് ഘട്ടങ്ങളിലായാണ് പശ്ചിമ ബംഗാളിൽ വോട്ടെടുപ്പ്

എസ് എൽ സി പ്തസ്ടു പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും വെക്കേഷണൽ ഹയർ സെക്കന്ററി പരീക്ഷകൾ നാളെയാണ് തുടങ്ങുക വിശദാംശങ്ങളുമായി സുരേഷ്

എസ് എൽ

എസ് എൽ

എസ്

എസ് എൽ

ഗൾഫിലും ലക്ഷദ്വീപിലും ഒൻപതു വീതം പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

സംസ്ഥാനത്ത് കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിലാണിത് ഒന്നു മുതൽ എട്ടാം തരം വരെയുള്ള കുട്ടികളെ മുഴുവൻ നേരത്തെ ജയിപ്പിച്ചിരുന്നു

ബി ഐ ഭവന വായ്പ പലിശ ഉയർത്തിയതായി വിവിധ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളിൽ എസ്

ബി

അല്ലാതെ നിരക്കിൽ വർദ്ധന വരുത്തിയിട്ടില്ല

അർഹരായ നൂറിലേറെ പേർ തൊഴില്ലെട്ടുക്കുന്ന സ്ഥാപനങ്ങളിലാണ് വാക്സിൻ നൽകേണ്ടത്

കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി മനോഹർ അഗ്നാനി ഇതുസംബന്ധിച്ച് ആരോഗൃ സെക്രട്ടറിമാർക്ക് കത്തയച്ചു

തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യവും മാറ്റിവെച്ച എസ്

സി പ്സസ്ടു പരീക്ഷകൾ ആരംഭിക്കുന്നതും കണക്കിലെടുത്ത് സംസ്ഥാനത്ത് അതീവ ജാഗ്രത പാലിക്കണമെന്ന് ചീഫ് സെക്രട്ടറി വി

തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോളിംഗ് ഏജന്റുമാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി പങ്കെടുത്തവർ തുടങ്ങിയവർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് കോവിഡ് രോഗ ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം നിരീക്ഷണത്തിൽ കഴിയേണ്ടതും കോവിഡ് പരിശോധന നടത്തേണ്ടതുമാണ്

ഇത്തരം പ്രസ്താവനകൾ ആശങ്കയുണ്ടാക്കുന്നതായും മരണനിരക്ക് കുറയ്ക്കുകയാണ് വാക്സിൻ കുത്തിവയ്പ്പിന്റെ പ്രാഥമ ലക്ഷ്യമെന്നും ആരോഗൃമന്ത്രി അറിയിച്ചു

എസ് നിർമ്മിതമായ മോഡേണ ആർ

ഏ വാക്സിനും വിതരണം ചെയ്തു തുടങ്ങി

അപകടകരമായ വിധത്തിൽ കോവിഡ് വ്യാപനം ഉയരുന്നതിനാലാണ് നടപടി

ആദ്യ പരിശീലന മത്സരത്തിൽ ഇന്ത്യ് അർജന്റീനയെ മൂന്നിനെതിരെ നാല് ഗോളിന് പരാജയപ്പെടുത്തിയിരുന്നു